ഉദ്യോഗസ്ഥർക്ക് സ്ഥല മാറ്റം

എസ്

ലോകകപ്പ് ഹോക്കിയിൽ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ കാനഡയെ നേരിടുന്നു

ബുലന്ദ് ഷഹർ എസ്

പി യായ കൃഷ്ണ ബഹദൂർ സിംഗ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയാണ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് സ്ഥലം മാറ്റിയത് പ്രഭാകർ ചൌധരിയാണ് ബുലന്ദ് ഷഹറിലെ പുതിയ എസ്

ജി

കലാപം ഉണ്ടായി ആറ് ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് പൊലീസ് ഇൻസ്പെക്ടറായ സുബോധ് കുമാർ ഉൾപ്പെടെ രണ്ട് പേർ കൊല്ലപ്പെട്ടത് കലാപത്തിലാണെന്നും ആൾക്കൂട്ട കൊലപാതക മല്ലെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്പെയാഗി ആദിത്യനാഥ് വിശദീകരിച്ചിരുന്നു

കേസിൽ ഉൾപ്പെട്ട പ്രതികൾക്കായി പ്രത്യേക്ട് അന്വേഷണ സംഘം തിരച്ചിൽ തുടരുകയാണ്

ജില്ലകളിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്

രാത്രിയോടെ ഫലമറിഞ്ഞു തുടങ്ങും

പത്ത് ജില്ലകളിൽ ത്രിതല പഞ്ചായത്ത് തലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക

രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുന്ന പോളിംഗ് വൈകിട്ട് മൂന്നിന് സമാപിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രചാരണ പരിപാടികൾ ഊർജ്ജിതമാക്കിയിരുന്നു ബിജെപി കോൺഗ്രസ് അസം ഗണാ പരിഷത്ത് എ

എഫ് ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് ഇടതുപാർട്ടികൾ എന്നിവരാണ് മത്സരരംഗത്തുള്ളത് ബുധനാഴ്ചയാണ് വോട്ടെണ്ണൽ

ചികിത്സയിലായിരുന്ന ഒരാളാണ് മരിച്ചത്

നാലു പേരെ പ്രത്യേക ചികിത്സയ്ക്കായി ജമ്മുകശ്മീർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് രാവിലെ ലോറനിൽ നിന്നും പൂഞ്ചിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽ പെട്ടത്

മരിച്ചവരുടെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്

ഏഴംഗ ബഞ്ച് നാല് ദിവസം കൊണ്ടാണ് വാദം പൂർത്തിയാക്കിയത് പ്രസിഡന്റിനെ പ്രതിനിധീകരിച്ച് അറ്റോർണി ജനറൽ ഹാജരായി സുപ്രീം കോടതിക്ക് ഈ ഹർജികൾ കേൾക്കാൻ നിയമപരമായി അവകാശം ഇല്ലെന്നും അതിനാൽ അവ തള്ളിക്കളയണമെന്നും അറ്റോർണി ജനറൽ ആവശ്യപ്പെട്ടു

അതേ തുടർന്ന് പാർലമെന്റ് പിരിച്ചുവിട്ടതിൽ കോടതി സ്റ്റേ ക്ട് പുറപ്പെടുവിക്കുകയും തെരഞ്ഞെടുപ്പ് വേഗത്തിലാക്കാൻ ഉത്തൂർപിടുകയും ചെയ്തു പാർലമെന്റ് പിരിച്ചുവിട്ടതിനെതിരെ ക്കോടതി വിധി ഉണ്ടായാൽ റനിൽ വിക്രമസിംഗയെ പ്രധാന്ദ്രിയാക്കാൻ പ്രസിഡന്റ് അനുവദിക്കുമോ എന്നത്രിണ്ട് ഇനി പ്രധാനമെന്ന് ആകാശവാണി പ്രതിനിധിരിപ്പോർട്ട് ചെയ്യുന്നു

ശർമ്മ ഒലി സാർക്ക് അംഗരാജൃങ്ങൾക്കും ദക്ഷിണ ഏഷ്യൻ രാജൃങ്ങളിലെ ജനങ്ങൾക്കും ആശംസകൾ നേർന്നു സാർക്ക് ആരംഭിച്ചതിന് ശേഷം സഖ്യം പല മേഖലകളിലും വലിയ തോതിൽ വികസിച്ചതായും അദ്ദേഹം ട്വീറ്റ് ചെയ്തു

സേവനങ്ങളിലെ അപര്യാപ്തതകൾ പരിഹരിക്കുക ഇതര ഒരുക്കങ്ങൾ കൊണ്ടുവരിക എന്നിവ ലക്ഷ്യമിട്ടാണ് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്

വ്യാജ പോർട്ടലുകളേയും സംഘാടകരേയും ഒഴിവാക്കി കൂടുതൽ വിശ്വസനീയമായ സേവനം ഉറപ്പു വരുത്തുകയാണ് പുതിയ നിർദ്ദേശങ്ങളുടെ ലക്ഷ്യം

ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വിദേശ ഇന്ത്യക്കാർക്ക് മനസ്സിലാക്കുന്നതിനും അതിൽ പ്രചോദിരാകുന്നതിനും ഇന്ത്യയെ അറിയുക പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു

നിരോധനാജ്ഞ നീട്ടണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ പൊലീസ് മേധാവി കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി

ഇന്നും നാളെയും അവധി ദിവസങ്ങളായതിനാലാണ് സന്നിധാനത്ത് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വർദ്ധനവുണ്ടായത് നട തുറന്നപ്പോൾ ദർശനത്തിനായി കാത്തു നിന്ന തീർഥാടക തിരക്ക് വലിയ നടപ്പന്തൽ വരെ നീണ്ടിരുന്നു

രാവിലെ മുഖ്യമന്ത്രി പിണറാ്യി വീജയനും കേന്ദ്ര വ്യോമയാന മ ന്ത്രി സുരേഷ് പ്രഭുവും ച്ചേർന്ന് ഉദ്ഘാടനം നിർവ്വഹിക്കും രാവി ലെ ആറുമണിക്ക് ആദ്യ വിമാനത്തിലെ യാത്രക്കാർക്ക് മട്ടന്നൂർ സഹകരണ ബാങ്ക് പരീസ്രത്ത് സ്വീകരണം നൽകും വി ഐ പി ലോഞ്ച് എ ടി എം ഫോറിൻ എക്സ്ചേഞ്ച് കൌണ്ടർ മലബാർ കൈത്തറി ഇൻസ്റ്റലേഷൻ അനാച്ഛാദനം ഫുഡ് ആൻഡ് ബീവറജ്സ് തുടങ്ങിയ വിവിധ സേവനങ്ങളുടെ ഉദ്ഘാടനം സംസ്ഥാന മന്ത്രിമാർ നിർവ്വഹിക്കും

എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് റഷ്യയുമായി തെരഞ്ഞെടുപ്പ് വേളുയിൽ ഗൂഡാലോചന നടത്തിയിട്ടുണ്ടോ എന്നത് സംബണ്ഡിച്ച് ചോദ്യ്തതിനുള്ള മറുപടി രേഖകളിൽ പ്രതിപാദിച്ചിട്ടില്ലും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപിന്റെ ഓഫീസുംഗ്ഷ്യയ്ക്മായി രേഖപ്പെടുത്താത്ത ബന്ധം ഉണ്ടായിരുന്നതായി ക് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു

എസ് കൽവരി ഇന്ത്യൻ നാവിക സേനയുടെ ഭാഗമായതിന്റെ ഓർമ്മയ്ക്കായാണ് അന്തർവാഹിനി ദിനം ആചരിക്കുന്നത്

ന്യൂഡൽഹിയിൽ നടന്ന ജാഗരൺ കോൺ ക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസിൽ നിന്നും ഓരോ വർഷവും ആയിരത്തോളം കായിക താരങ്ങളെ തെരഞ്ഞെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഇവർക്ക് അടുത്ത എട്ട് വർഷത്തേയ്ക്ക് അഞ്ച് ലക്ഷം രൂപ സ്കോളർഷിപ്പ് നൽകുമെന്നും ശ്രീ റാത്തോഡ് പറഞ്ഞു

അവസാന ഗ്രൂപ്പ് മത്സർത്തിൽ വിജയിച്ച് ഗ്രൂപ്പിൽ ഒന്നാമതെത്തി കാർട്ടർ ഫൈനലില്ലേക്ക് യോഗൃത നേടാനാണ് ആതിഥേയർ ശ്രമിക്കുക

ഇന്ന് നേരത്തെ നടന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ബെൽജിയം വിജയിച്ചു

ഓസ്ട്രേലിയ യും അർജന്റീനയുമാണ് ഇപ്പോൾ കാർട്ടർ ഫൈനലിൽ യോഗ്യത നേടിയിരിക്കുന്നത്